മീശ നോവൽ നിരോധിക്കണ മെന്ന ഹർജി സുപ്രീം കോടതി തളളി ദേശീയ അധ്യാപകദിനം ഇന്ന്

എലിപ്പനി പടരാ്ൻ ഇടയുള്ള പ്രദേശങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്ത ണമെന്നും ആരോഗ്യ വകുപ്പ് പ്രവർത്തകർ ഇത്തരം മേഖലക ളിൽ എത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു വെന്ന് ഉറപ്പു വരുത്തണമെന്നും മുഖ്യമന്ത്രി നിർദേശിച്ചു

പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജനകീയ ബ്ലോധ വത്കരണ പരിപാടി ശക്തമാക്കുന്നതിനൊപ്പം മറ്റ് പകർച്ചവ്യാധികൾക്കെ തിരായ മുൻകരുതൽ നടപടികൾ ്ജാഗ്രത്യോടെ നടത്തണ മെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു

പ്രതിരോധ പ്രവർത്തനങ്ങൾക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയാൽ കർശന നടപടിയെ ടുക്കുമെന്നും ഇ മാലിന്യ പകർച്ച വ്യാധികൾക്കെതിരെ പ്രത്യേക കർമ്മ പരിപാടി നടത്തു ന്നുണ്ടെന്നും ശൈലജ അറിയിച്ചു കോഴിക്കോട് ജില്ലയിൽ എലിപ്പനി സംശയിക്കുന്ന അഞ്ച് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു

രോഗി കൾക്ക് ആവശ്യമായ മരുന്നുകൾ ആശുപത്രികളിൽ വേണ്ടത്ര ലഭ്യമല്ലെന്ന പരാതി വ്യാപകമാണെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു പ്രളയക്കെടുതിയിലെ നഷ്ടപരിഹാര വിതരണത്തിന് ട്രൈബ്യൂണൽ ഉടൻ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കണ മെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലി തിരുവനന്തപു രത്ത് ആവശ്യപ്പെട്ടു സംസ്ഥാന ഗവ

ഓഖി ദുരന്തത്തിന് ഇരയാ യവർക്ക് കേന്ദ്ര ഗവ

ഈ അനുഭവത്തിൽ നിന്നാണ് യു ഡി എഫ് ട്രൈബ്യൂണൽ ആവശ്യം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നതെന്ന് അദ്ദേഹം മീറ്റ് ദ പ്രസിൽ പറഞ്ഞു

കലോത്സവം ഒഴിവാക്കുമ്പോൾ കുട്ടി കളുടെ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ വിഷയങ്ങളിൽ ആലോചിച്ച ശേഷം ഉചിതമായ തീരുമാനങ്ങളെടുക്കുമെന്ന് മന്ത്രി തിരുവനന്ത പുരത്ത് അറിയിച്ചു സംസ്ഥാനത്തിന്റെ പുനർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കെ പി എം ജി പ്രവർത്തിക്കുന്നതുപോലെ സൌജ നൃമായി പഠനങ്ങൾ നടത്തി റിപ്പോർട്ടുകൾ നൽകാൻ ഏതെ ങ്കിലും ഏജൻസികൾ തയ്യാറാണെങ്കിൽ അവർക്കും ഭാഗമാകാ മെന്നും അദ്ദേഹം പറഞ്ഞു

ഗവൺമെന്റ് ആവശ്യപ്പെടുന്ന സേവനം ഏറ്റവും ചുരുങ്ങിയ കാലയളവിൽ പൂർത്തിയാക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യമെന്ന് കെ പി എം ജി മേധാവി സച്ചിൻ മേനോൻ മുംബൈയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു എത്ര കോടി രൂപയുടെ പദ്ധതികളാണ് കേരളത്തിന് ആവ ശ്യമായി വരികയെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല വിദഗ്ധരുടെ സേവനം സാങ്കേതിക സഹായം നിർമാണം തുടങ്ങി ഏതൊക്കെ തലങ്ങളിൽ സഹകരിക്കാമെന്ന കാര്യ ത്തിൽ ചർച്ച നടക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനു മായി കമ്പനി പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തിയതായും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയശേഷം സംസ്ഥാനത്ത് നാഥനില്ലാത്ത അവസ്ഥയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ എം എൽ എ കുറ്റപ്പെടു ത്തി എലിപ്പനിയും ഡെങ്കിപ്പനിയും മത്സരിച്ച് ആളെ കൊല്ലു മ്പോൾ ആരോഗ്യവകുപ്പ് ഫലപ്രദമായി ഇടപെടുന്നില്ലെന്ന് അദ്ദേഹം തിരു വനന്തപു രത്ത് വാർത്താസമ്മേള നത്തിൽ പറഞ്ഞു പ്രളയശേഷം പകർച്ച വ്യാധികൾ നിയന്ത്രിക്കുന്നതിന് ഗവൺമെന്റ് നടപടി കൈക്കൊള്ളണമെന്ന് നിയമസഭയിൽ അംഗങ്ങൾ ഏകസ്വരത്തിൽ ആവശ്യപ്പെട്ടതാണ് എന്നിട്ടും ആവ ശ്യമായ മരുന്നുകൾ ലഭ്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു പി കെ ശശി എം എൽ എക്കെതിരായ പരാതി പൊലീസിന് കൈമാറണമെന്ന് മുരളീധരൻ ആവശ്യപ്പെട്ടു യു ഡി എഫ് എം എൽ എയ്ക്കും എൽ ഡി എഫ് എം എൽ എക്കും രണ്ട് നീതി ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു എസ് ഹരീഷ് എഴുതിയ മീശ നോവൽ നിരോധിക്കണമെന്ന ഹർജി സുപ്രീംകോടതി തള്ളി എഴുത്തുകാരന്റെ സ്വാതന്ത്ര്യ ത്തിൽ കൈകടത്താനാവില്ലെന്നും കലാസൃഷ്ടിയിലെ ഭാഗങ്ങൾ പ്രത്യേകമായി അടർത്തിമാറ്റിയല്ല വായിക്കേണ്ടതെന്നും കോടതി പറഞ്ഞു

നോവലിലെ ചില ഭാഗങ്ങൾ സ്ത്രീകളെയും വിശ്വാസിക ളെയും അപമാനിക്കുന്നതാണെന്ന് ആരോപിച്ചാ യിരുന്നു ഹർജി സമർപ്പിച്ചിരുന്നത് ഇന്തൃയും ഫ്രാൻസും തമ്മിലുണ്ടാക്കിയ റഫാൽ യുദ്ധവി മാന കരാർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാ ത്പര്യ ഹർജിയിൽ സൂപ്രീംകോടതി അടുത്ത ആഴ്ച വാദം കേൾക്കും ഇടപാടിൽ വിവേചനമുണ്ടെന്നാരോപിച്ച് അഭിഭാഷ കനായ എം എൽ ശർമ്മയാണ് കോടതിയിൽ പൊതുതാത്പരൃ ഹർജി നൽകിയത് ഹർജിയിൽ അടിയന്തരമായി വാദം കേൾക്ക ണമെന്ന ആവശ്യം അംഗീകരിച്ചാണ് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര ജസ്റ്റിസ് എ എം ഖൻവിൽക്കർ എന്നിവരടങ്ങിയ ബെഞ്ച് അടു ത്തആഴ്ച വാദം കേൾക്കാൻ തീരുമാനിച്ചത്

തൊടുപുഴ അൽ അസർ ഡി എം വയനാട് പാലക്കാട് പി

ദാസ് തിരുവനന്തപുരം എസ് ആർ എന്നീ മെഡിക്കൽ കോളേജുകളിലെ പ്രവേശനം ചോദൃം ചെയ്താണ് ഹർജി പി കെ ശശി എം എൽ എ ക്കെതിരെ പീഡനാരോപണം ഉന്നയിച്ച യുവതിയിൽ നിന്ന് സംസ്ഥാന വനിതാ കമ്മീഷന് പരാതി ഒന്നും ലഭിച്ചിട്ടില്ലെന്ന് കമ്മീഷൻ അധ്യക്ഷ എം സി ജോസഫൈൻ അറിയിച്ചു പരാതി ലഭിക്കാതെയും ഇര പറയാ തെയും സ്വമേധയാ നടപടി എടുക്കാനാവില്ല സിപിഐഎമ്മിന് പരാതി ലഭിച്ചാൽ അത് പരിശോധിച്ച് പാർട്ടി നടപടി സ്വീകരി ക്കാറുണ്ടെന്നും അത് കമ്മീഷന്റെ വിഷയമല്ലെന്നും അവർ തിരു വനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു പി കെ ശശി എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും അദ്ദേഹത്തിനെതിരായ പരാതിയിൽ പൊലീസ് അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് മണ്ണാർക്കാട്ടെ ശശിയുടെ വസതി യിലേക്ക് യുവമോർച്ചാ പ്രവർത്തകർ മാർച്ച് നടത്തി മാർച്ച് പൊലീസ് തടഞ്ഞപ്പോൾ ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ മുന്നോട്ട് പോകാൻ ശ്രമിച്ചത് നേരിയ സംഘർഷം സൃഷ്ടിച്ചു ഡി വൈ എഫ് ഐ ഇരിങ്ങാലക്കുട ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ആർ എൽ ജീവൻലാൽ അപമാനിക്കാൻ ശ്രമിച്ചു വെന്ന പരാതിയിൽ ഡി വൈ എഫ് ഐ വനിതാ നേതാവിൽ നിന്ന് പൊലീസ് മൊഴിയെടുത്തു

ജൂലൈയിൽ മെഡിക്കൽ എൻട്രൻസ് കോച്ചിംഗിന് ചേരാൻ തിരുവനന്തപു രത്ത് പോയ സമയത്ത് എം എൽ എ ഹോസ്റ്റലിൽ വെച്ച് അപ മാനിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു യുവതിയുടെ പരാതി

ഡിവൈഎഫ്ഐ ഇരിങ്ങാലക്കുട ബ്ലോക്ക് ജോയിന്റ് സെക്ര ട്ടറി സ്ഥാനത്തു നിന്ന് ഇയാളെ നീക്കുകയും ചെയ്തു

അധ്യാ പകരുടെ സാമൂഹൃ സാമ്പത്തിക പദവികൾ ഉയർത്തുകയും അവരുടെ കഴിവുകൾ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി ഉപ യോഗിക്കുകയും ചെയ്യുന്നതിന് അനുകൂല സാഹൃചര്യം സൃഷ്ടി ക്കുകയാണ് ദിനാഘോഷത്തിന്റെ ലക്ഷ്യം പ്രളയക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അധ്യാപക ദിനാഘോഷങ്ങൾ ഇല്ലെന്ന് മന്ത്രി പ്രൊഫ

അധ്യാപക ദിനത്തിന്റെ സന്ദേശം അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾക്കൊള്ളണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു

കേന്ദ്ര ഗവൺമെന്റിന്റെ കർഷക വിരുദ്ധ നയങ്ങളിൽ പ്രതി ഷേധിച്ച് ഡൽഹിയിൽ കിസാൻ സംഘർഷ് റാലി ആരംഭിച്ചു ഇടതുപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ രാംലീല മൈതാ നത്ത് നിന്ന് രാവിലെയാണ് പാർലമെന്റ് മാർച്ച് തുടങ്ങിയത് ഇന്തൃയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും തൊഴിലാളി കളും കർഷകരും ഒരുമിച്ച് അണിനിരക്കുന്നതെന്ന് മാർച്ചിന് നേതൃത്വം നല്കുന്ന കിസാൻ സഭ ജനറൽ സെക്രട്ടറി ഹനൻമു ള്ളയും സി ഐ ടി യു ജനറൽ സെക്രട്ടറി തപൻ സിൻഹയും പറഞ്ഞു കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന് കീഴിൽ കണ്ണൂ രിലെ ഫീൽഡ് ഔട്ട് റീച്ച് ബ്യൂറോ പേരാവൂർ ബ്ലോക്ക് പഞ്ചായ ത്തിൽ സംഘടിപ്പിക്കുന്ന പ്രത്യേക ജനസമ്പർക്ക പരിപാടിക്ക് തുടക്കമായി ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ദുരിതം വിതച്ച മേഖ ലകളിലെ പുനഃരധിവാസം ആരോഗ്യമേഖലയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുൻകരുതൽ നടപടികൾ എന്നീ വിഷയങ്ങളിൽ ബോധവൽക്കരണം നടക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ചും ബോധവത്കരണ ക്ലാസ്സുണ്ടാകും മറ്റന്നാൾ കേളകത്ത് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും എട്ട് പാസഞ്ചറുകൾ റദ്ദാക്കിയതായി റെയിൽവെ അറിയിച്ചു ഗുരുവായൂർ തൃശൂർ റൂട്ടിലെ രണ്ട് പാസഞ്ചറുകളും പുനലൂർ കൊല്ലം കോട്ടയം വഴി ഓടുന്ന എറണാകുളം കായംകുളം എ റണാകുളം സർവീസുകളുമാണ് ഇന്നു മുതൽ ഞായറാഴ്ച വരെ റദ്ദാക്കിയത് ഈ ദിവസങ്ങളിൽ ഗുരുവായൂർ പുനലൂർ ഗുരുവായൂർ പാസഞ്ചറും പുനലൂർ കൊല്ലം തൃശൂർ കോഴി ക്കോട് പാസഞ്ചറും തൃശൂരിനും ഷൊർണൂരിനും ഇടയിൽ സർവീസ് നടത്തില്ല

കോഴിക്കോട് ജില്ലാ കൌൺസിൽ അംഗം ജില്ലാ പഞ്ചായത്ത് അംഗം എന്നീ നിലയിൽ പ്രവർത്തി ച്ചിരുന്നു കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ പരാതിയിൽ ഒരാളെ ടൌൺ പൊലീസ് കസ്റ്റഡിയിലെടുത്തു കൊല്ലം സ്വദേശി വിശാഖ് ചന്ദ്ര നാണ് പിടിയിലായത് കണ്ണൂർ റെയിൽവെ സ്റ്റേഷനടുത്തു പ്രെച്ച് കാൽനടയാത്ര ക്കാരനെ കൊള്ളയടിച്ച് മൂന്നരൂപ്പനും മൊബൈൽ ഫോണും പണവും കവർന്ന സംഭവത്തിൽ നാലു പേരെ പൊലീസ് പിടി കൂടി ഇന്നലെ രാത്രി കണ്ണൂർ റെയിൽവെ സ്റ്റേഷനിൽ ട്രെയിനി റങ്ങി ബസ്റ്റാൻഡി ലേക്ക് നടന്നു പോകവെയായിരുന്നു മോഷണം നടത്തിയത് മോഷണ സംഘം സഞ്ചരിച്ച മാരുതി വാനും കസ്റ്റഡിയിലെടുത്തു